അടുത്ത വർഷം ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാ ന് ഘോഷത്തിന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ മുഖ്യ അതിഥിയാവും

സി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബെൽജിയത്തെയും ക്യാനഡ ദക്ഷിണാഫ്രിക്കയെയും നേരിടും

അതിവേഗം വളർന്നുകൊണ്ടിരുക്കുന്ന ഇന്ത്യയിലേക്ക് വരാൻ ശ്രീ മോദി ലോക നേതാക്കളെ ക്ഷണിച്ചു ഇന്ത്യയുടെ മഹത്തായ ചരി ത്രവും നാനാത്വവും മനസ്സിലാക്കാനും ഇത് ഉപകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ഇറ്റലി അംഗീകരിക്കുകയും ചെയ്തു

വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ബിജെപി പ്രസിഡന്റ് അമിത്ഷാ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി ബി

കേന്ദ്രത്തിലെ എൻഡിഎ ഗവണ്മെന്റും രാജസ്ഥാനിലെ ബിജെപി ഗവണ്മെന്റും സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുവെന്ന് ജോദ്പൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെ ബിജെപി പ്രസിഡന്റ് അമിത്ഷാ പറഞ്ഞു

രാജസ്ഥാനിലെ ഭിൽവാരയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

തെലങ്കാനയിൽ ബിജെപി കോൺഗ്രസ് ടിആർഎസ് എന്നീ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് ന്യൂസ്ഡസ്ക് ആകാശവാണി

കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിന് കൂടുതൽ ഉപഭോക്താക്കളെ കമ്പോളങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം

കാർഷിക വ്യവസായിക മേഖ്ചലകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് കാർഷിക്കോത്പന്നങ്ങളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കാൻ ഉതകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജ്ജന് പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന തുടങ്ങി നിരവധി പദ്ധതീകളാണ് രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനായി ഗവണ്മെന്റ് നടപ്പാക്കുന്നത്

ഗവർണ്ണർ സത്യപാൽ മാലിക് പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഗുണഭോക്താ ക്കൾക്ക് സുവർണ്ണ കാർഡുകൾ കൈമാറി ജനങ്ങളുടെ ക്ഷേമ ത്തിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി നടപടികൾ കൈക്കൊണ്ട തായി ശ്രീ

വൻ തോതിൽ ചികിത്സാ ചെലവുകൾ വഹിക്കാൻ പറ്റാത്ത ദരിദ്രർക്ക് ആശ്വാസം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ മറ്റൊരു സംരംഭമാ ണിതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയുടെ ഓഫീസ്സിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു

ഭീകർക്ക് നേരെ സേന തിരിച്ച് വെടിയുതിർത്തുവെന്നും മേഖലയിൽ തിരച്ചിലിന് തുടക്കം കുറിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി

സംഭവത്തെക്കുറിച്ച് പോലീസും റെയിൽവേ ഉദ്യോഗസ്ഥരും അന്വേഷണം ആരംഭിച്ചി ട്ടുണ്ട്

എന്നാൽ ഒക്ടോബർ മാസം ഇത് ഒരു ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു

ഇന്നലെ ്രാത്രി സംഗീത നൃത്ത പരിപാടികളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ് നാഥ് സിംഗ് സ്ക്ക്സ്ട്രാനത്തിന്റെ പ്രധാന ആഘോഷ വേളയിൽ നാഗാലാന്റില്ലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ കെന്നത്ത് ഐ ജസ്റ്റർ ജസ്റ്റിസ് ശരദ്ദ് അർവിന്ദ് ബോബ ഡേ തുടങ്ങിയവർ ഇന്നലത്തെ ചടങ്ങിൽ സ്റ്റ്മിഹിതരായിരുന്നു

രാമഫോസയുടെ സന്ദർശനം ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയുമായുള്ള വ്യാപാരബന്ധത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിൽ പരസ്പര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും സഹായമാകുമെന്ന് ശ്രീ

ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയി ട്ടുള്ള ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ്ഫോർമിലൂടെ രജിസ്ട്രേഷൻ നട ത്താമെന്ന് ഒദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിദൂര നിയന്ത്രിത ചെറു വിമാനങ്ങളായ ഡ്രോണുകളുടെ സുരക്ഷിത മായ ഉപയോഗം സാധ്യമാക്കുന്നതിനായി വ്യോമയാന നിയമ ത്തിൻ കീഴിൽ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് ഈ വർഷം ഓഗസ്റ്റിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു നിരീക്ഷണ ങ്ങൾക്കായി ഉപയോഗിക്കുന്നവ ഉൾപ്പെടെ വിവിധ വലിപ്പത്തി ലുള്ള ഡ്രോണുകൾ രജിസ്ട്രേഷന് വിധ്യേയമാകണം ഡ്രോണുകൾ ഭാവിയിൽ വ്യവസായ സ്ഥാക്യ്തകൾ നല്കുന്നു ണ്ടെന്നും വ്യാപകമായി ഡ്രോണുക്ൾ ഉപ്യോഗിക്കുന്നത് രാജ്യ ത്തിന് അഭിമാനമാണെന്നു വ്യൂമ്മയാന്ത്രി സുരേഷ് പ്രഭു പറ ഞ്ഞു

സിഖ് വികാരങ്ങളോട് ഖുറേഷിക്ക് യാതൊരു ബഹുമാനവും ഇല്ലെന്ന് തോന്നും വിധമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളെന്ന് ശ്രീമതി സുഷമാ സ്വരാജ് തുടർച്ചയായി ട്വിറ്ററിൽ രേഖപ്പെടുത്തി കർത്താപൂർ സാഹിബിലെ വിശുദ്ധ ഗുരുദാരയിൽ പ്രാർത്ഥന നടത്താൻ രണ്ട് കേന്ദ്രമന്ത്രിമാർ അവിടെ പോയിരുന്നുവെന്നും ശ്രീമതി സുഷമാസ്വരാജ് പറഞ്ഞു

സമകാലിക വെല്ലുവിളികൾ നേരിടുന്നത് സംബന്ധിച്ച് ദ്വിദിന ഉച്ചകോടി ചർച്ച ചെയ്യും കാലാവസ്ഥാ വൃതിയാനം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾ ഭീകരപ്രവർത്തനങ്ങൾ എന്നിവ മൂലം ലോകം നിരവധി വെല്ലുവിളികളാണ് നേരിട്ടു കൊണ്ടിരിക്കുന്നതെന്ന് ഉച്ചകോടി ഉത്ഘാടനം ചെയ്യവെ നേപ്പാൾ പ്രസിഡന്റ് കെ

ഭീകരപ്രവർത്തനവും കാലാവസ്ഥാ വൃതിയാനവും മാനവരാശിക്ക് വലിയ ഭീഷണി ഉയർത്തുകയാണെന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എച്ച്

ദേവഗൌഡ പറഞ്ഞു

ഭൂവനേശ്വറിലാണ് മത്സരം നടക്കുന്നത് ഇന്നലെ നടന്ന പൂർ ്യൂസി മാച്ചിൽ ജർമ്മനി പാകിസ്ഥാനെയും നെതർലന്റ്സ് മ്ലേഷ്യയെയും തോല്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആക്ടുശവാണി പ്രതിനിധി സുരേഷബാബു